ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കേക്കിലേക്ക് യാത്ര തിരിച്ചു

ആധാർ നിയമ ഭേദഗതി ബ്ലില്ലും ്കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപന സംവരണ ബ്ദില്ലും കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു

കേന്ദ്ര ബജറ്റിനോടനുബന്ധിച്ച് ധനകാര്യ മൂലധന വിപണി പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി നിർമലാ സീതാരാമൻ കൂടിക്കാഴ്ച നടത്തുകയാണ്

ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്തൃ ഇന്ന് നൃൂസിലാന്റിനെ മത്സരം ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ

ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനത്തിൽ പങ്കെടുക്കും വിശദാംശങ്ങളുമായി ലക്ഷ്മി

എട്ട് രാഷ്ട്രങ്ങളിലെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്

ആഗോള സുരക്ഷ മേഖല സഹകരണം ബഹുരാഷ്ട്ര സാമ്പത്തിക സഹകരണം ജനങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം സമകാലിക പ്രശ്നങ്ങൾ എന്നിവയാണ് എസ് സി ഒ യുടെ മുന്നിലുള്ള പ്രധാന കാര്യപരിപാടികൾ അഫ്ഗാനിസ്ഥാന്റെ സുസ്ഥിരതയും സമാധാനവുമാണ് ഈ വർഷത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് സമ്മേളനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിംഗ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ പ്രസിഡന്റ് ഹസ്സൻ റുഹാനി എന്നിവരുമായി ഉഭയകക്ഷി ചർച്ച നടത്തും പൊതു തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചൈനീസ് പ്രസിഡന്റ് ഹാർദ്ദമായി അഭിനന്ദിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആധാറിന്റെ ദുരുപയോഗം തടയുകയാണ് പുതിയ ബില്ലിന്റെ പ്രധാന ലക്ഷ്യം

പുതിയ ഭേദഗതിയിലൂടെ തിരിച്ചുറിയൽ രേഖയായി ആധാർ നിർബന്ധമാക്കുന്ന വ്യവസ്ഥ ഇല്ലാതാകും

രാജ്യത്തെ ഒഴിവുള്ള ഏഴായിരം അധ്യാപക തസ്തികയിലേക്ക് നേരിട്ട് നിയമനം നടത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ന്യൂഡൽഹിയിൽ അറിയിച്ചു

സ്കെൻ്റർ പ്രാവർത്തികമാകുന്നതോടെ അന്താരാഷ്ട്ര സമൂഹങ്ങൾക്കുൾപ്പെടെ തർക്ക പരിഹാരത്തിന് പുതിയ ഒരു വേദി തുറന്നു ക്ടിട്ടൂർ ഗവൺമെന്റിനും ഗവൺമെന്റ് ഏജൻസികൾക്കും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുമായി ഉണ്ടാകുന്ന തർക്കങ്ങൾ കുറഞ്ഞ ചെലവിൽ പരിഹരിക്കാനും സെന്റർ സഹായിക്കും ഇതോടെ സ്ഥാപനാധിഷ്ഠിത തർക്ക പരിഹാരങ്ങൾക്കുള്ള അന്താരാഷ്ട്ര വേദിയായി ഇന്ത്യ മാറും

ഉയർന്ന പ്രദേശങ്ങളിൽ സൈനിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ഭൌതികവും മാനസികവുമായ നില മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം യോഗ പ്രകൃതിദത്ത ചികിത്സാരീതി എന്നിവയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകും

ഈ കാലയളവിൽ ഗവേണ്ടിംഗ്പ് ് ബോർഡിക്ക് അധികാരം വിനിയോഗിക്കാനാവും

രാജൃത്തെ മെഡിക്കൽ വിദ്യാ്ഭ്യാസ് മേഖലയിൽ സുതാര്യതയും ഗുണനിലവാരവും ഉറപ്പാക്കുകയാണ് മെഡിക്കൽ കൌൺസിൽ ഭേദഗതി ബില്ലിന്റെ ലക്ഷ്യം

ധനകാര്യ മൂലധന വിപണികളിലെ പ്രതിനിധുകളുമായി ധനമന്ത്രി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച ഇപ്പോൾ നടത്തുകയാണ് തുടർന്ന് അടിസ്ഥാന സൌകര്യ മേഖലയിലേയും കാലാവസ്ഥാ വ്യതിയാന രംഗത്തേയൂം വിദഗ്ധരുമായി ചർച്ച നടത്തും നേരത്തെ കൃഷി വ്യവസായം വാണിജ്യം എന്നീ രംഗത്തെ പ്രതിനിധികളുമായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു

തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്

അതേസമയം ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്

തീരദേശ ജില്ലകളായ ദിയു ഗിർസോമനാഥ് ജുനഗഡ് പോർബന്തർ ദ്വാരക എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റ് വീശും ഈ പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ചുഴലിക്കാറ്റ് കേന്ദ്രികരീകരിക്കുന്നത്

മുൻകരുതൽ എന്ന നിലയിൽ ഗുജറിൽതിൽ ഇതുവരെ മൂന്ന് ലക്ഷം പേരെ മാറ്റിപാർപ്പിച്ചിട്ടുണ്ട്

ചുഴലിക്കാറ്റിന് ദിശമാറ്റം വരുന്നതിനാൽ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട് സുരക്ഷാ മാർഗ്ഗുങ്ങളും മുൻകരുതലുകളും എടുത്തിട്ടുണ്ടെന്ന് പശ്ചിമ റെയിൽവേ അറിയിച്ചു

ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ ഇന്നലെ ശക്തമായ പൊടിക്കാറ്റും ചെറിയ തോതിൽ മഴയും ഉണ്ടായി

ഇന്ന് ഡൽഹിയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കൊടുംചൂട് തുടരുന്ന രാജസ്ഥാനിലും ഇന്നലെ നേരിയ മഴ പെയ്തു ജമ്മു കശ്മീരിലും ഹിമാചൽപ്രദേശിലും മഴയെതുടർന്ന് ചൂട് കുറഞ്ഞു

കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ജയിച്ചാണ് ഇന്ത്യ ഇന്ന് മത്സരത്തിനിറങ്ങുന്നത് ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയേയും തുടർന്ന് ഓസ്ട്രേലിയയെയുമാണ് ഇന്തൃ പരാജയപ്പെടുത്തിയത്

ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് യാതൊരു പ്രതിസന്ധിയും ഇല്ലെന്ന് ധനമന്ത്രി ഡോ

സർവ്വകാല അലോട്ട്മെന്റാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്

ബാക്കിയുള്ള പണം നൽകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് അദ്ദേഹം അറിയിച്ചു അതീവഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടാൻ പോകുന്നതെന്ന് അടിയന്തിര പ്രിമേയത്തിന് അനുമതി തേടിയ കോൺഗ്രസ്സിലെ കെ

ജോസഫ് ആരോപിച്ചു

ഏറ്റവും കൂടുതൽ കുട്ടികൾ മരിച്ചത് മുസാഫർപൂരിലാണ്

ആരോഗൃ മന്ത്രാലയ സെക്രട്ടറി പ്രീതി സുധൻ അദ്ദേഹത്തെ അനുഗമിക്കും കൂടാതെ ഡോക്ടർമാരുടെ വിദഗ്ധസംഘവും ഇന്ന് സന്ദർശിക്കുന്നുണ്ട്

കേന്ദ്രമന്ത്രി നിർമലാസീതാരാമൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എം എ എം എഫിൽ ബിരുദങ്ങൾ നേടിയത് കേന്ദ്രമന്ത്രി ജയ്ശങ്കർ എം ഫിൽ ബിരുദം നേടി

ന്യൂഡൽഹിയിൽ എൻ ഐ ടി ഡയറക്ടർമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശാസ്ത്ര അവബോധവും ഗവേഷണവും പുതിയ ഇന്ത്യയുടെ നിർമ്മിതിക്ക് അനിവാര്യമാണ്